റോബർട്ട് മുഗാബെയുടെ അനുയായി എമേഴ്സൺ നഗാഗ്വെയ്ക്ക് വിജയം

ഇതുവഴി കൂടുതൽ പേർക്ക് തൊഴിൽസാധ്യത ഉറപ്പാക്കിയതായി റെയിൽ മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു

പരമാവധി അപേക്ഷകർക്ക് അവരുടെ ഏറ്റവും അടുത്ത നഗരത്തിലായിരിക്കും പരീക്ഷ സെന്റർ അനുവദിക്കുകയെന്ന് റെയിൽവേ അറിയിക്കുന്നു

അംഗങ്ങളുടെ നിലവിലെ പ്യാർട്ടീ ഭാരവാഹിത്വങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ബത്തിണ്ടയിൽ ഇന്നലെ രൂടന്ന് റാലിയെ അഭിസംബോധന ചെയ്യവേ പാർട്ടിയുടെ കേന്ദ്രനേതൃത്വത്തിന്റെ ഇടപെടൽ ഇനിമുതൽ പഞ്ചാബ് ഘടകത്തിൽ ഉണ്ടാകില്ലെന്ന് ശ്രീ

തന്റെ പ്രതിപക്ഷ നേതൃത്വ പദവി നീക്കം ചെയ്ത കേന്ദ്ര നേതൃത്വത്തിന്റെ നടപടി പുനപരിശോധിക്കാൻ ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

എ മാരിൽ എട്ട് പേരാണ് കൈറയ്ക്കെതിരായ നടപടി ചോദ്യം ചെയ്ത് മുന്നോട്ടുവന്നിട്ടുള്ളത് കൈറയുടെ സ്ഥാനത്ത് ശ്രീ ഹർപാൽ സിങ് ചീമയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അവരോധിക്കാനാണ് പാർട്ടി കേന്ദ്ര ഘടകത്തിന്റെ തീരുമാനം ഇതിനെതിരെയാണ് പുതിയ സംഭവ വികാസങ്ങൾ

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി

മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയാണ് സഭ ബിൽ പാസാക്കിയത്

പാവപ്പെട്ടവരുടെയും പിന്നാക്കകാരുടെയും അധഃസ്ഥിത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാ ബദ്ധമാണെന്ന് ബിൽ സംബന്ധിച്ച ചർച്ചകൾക്ക് മറുപടി പറയവെ കേന്ദ്രമന്ത്രി തവർചന്ദ് ഗേലോട്ട് പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്ക് നല്കുന്ന എല്ലാ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ മറ്റുപിന്നാക്ക വിഭാഗങ്ങൾക്കും ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ജസ്റ്റിസ് എ

അംഗപരിമിതരുടെ സൌകര്യത്തിനായി ബസുകളിൽ ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ ഉറപ്പാക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചതിനാൽ ഇടക്കാല അനുമതിയാണിതെന്ന് കോടതി പറഞ്ഞു

ഇതിനെ ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു ക്വോടതി

പ്രധാന എതിരാളി എം ഡി

സിംബാബ്വെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഗാഗ്വെയുടെ വിജയം അംഗീകരിച്ചു അതേസമയം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ഫലം ബഹിഷ്കരിച്ചു

ഫലപ്രഖ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും ആറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു പ്രതിഷേധ പ്രകടനം നടത്തിയവരുടെ നേർക്ക് സൈന്യം നടത്തിയ വെടിവയ്പ്പിലാണ് ആളുകൾ കൊല്ലപ്പെട്ടത്

കസാഖ്സ്ഥാനിലെ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ കസാഖിസ്ഥാൻ തലസ്ഥാനുമായ അസ്താനയിൽ ഇന്നലെയാണ് ശ്രീമതി സുഷമ എത്തിയത്

വിഭവസമ്പന്നമായ മദ്ധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതു ലക്ഷ്യമിട്ടാണ് ത്രിരാഷ്ട്ര സന്ദർശനം

ഐ ആറുകൾ ഒന്നായി പരിഗണിക്കാൻ മദ്രാസ് ഹൈക്കോടതി ജില്ലാ പോലീസിന് നിർദ്ദേശം നൽകി കേസുകൾ ഒറ്റ എഫ് ഐ ആർ പ്രകാരം നടത്താനും മറ്റുള്ളവ പ്രസ്താവനകളായി പരിഗണിക്കാനുമാണ് കോടതി ഉത്തരവ്

കൂടുതൽ വിവരങ്ങളുമായി ഗ്ദാപ്കുമാർ

കടൽക്ഷോഭത്തെ തുടർന്ന് വെള്ളം കയറിയ കപ്പലിൽ നിന്ന് പരമാവധി ജലം പുറത്തുകളഞ്ഞതായി തീരസംരക്ഷണസേനയുടെ ആന്റമാൻ നിക്കോബാർ മേഖലാ ഡി ഐ ജി ആഷിഷ് മൽഹോത്ര ആകാശവാണിയോട് പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

ആമസോൺ മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളെ പിൻതള്ളിയാണ് ആപ്പിൾ ഈ നേട്ടം കൈവരിച്ചത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും

മൂന്ന് സെഷനുകൾ ഉൾപ്പെടുന്നതാണു സമ്മേളനം

പ്രത്യേക ജഡ്ജി എസ്

പ്രസാദാണ് ശിക്ഷ വിധിച്ചത്

കനുജിയ ഗ്രാമത്തിലാണ് രണ്ട് കുട്ടിക്ടളുടെ മരണത്തിന് ഉത്തരവാദികളെന്നാരോപിച്ച് ജനക്കൂട്ടരിങ്ങ്ച് യുവതികളെ കൊല്പ്പെടുത്തിയത്

ക്യാപ്റ്റൻ വിരാട് കോഹ്ലി സെഞ്ചറി നേടി

ഇന്ത്യയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അയർലന്റ് ആദ്യമായി സെമിയിൽ കടന്നു

ഇന്ത്യയുടെ ഗോൾ കീപ്പർ രണ്ട് തവണ വല കാത്തെങ്കിലും ടീമിന്റെ ജയത്തിന് അത് അനിവാര്യമായില്ല

ഇത് സംബന്ധിച്ച് ഇന്നലെ വിവിധ മന്ത്രാലയങ്ങ്ൾ ്യാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു